കർത്താർപ്പൂർ ഇടനാഴി നിർമ്മാണം സംബന്ധിച്ച് ഇന്ത്യ പാക് ചർച്ച വാഗാ അതിർത്തിയിൽ തുടങ്ങി

കർണ്ണാടകയിൽ രാഷ്ട്രീയ നീക്കങ്ങൾ സജീവം

ലോകകപ്പ് ക്രിക്കറ്റ് കലാശപോരാട്ടത്തിൽ ഇംഗ്ലണ്ട് ഇന്ന് ന്യൂസിലാണ്ടിനെ നേരിടും

വിശദാംശങ്ങളുമായി നവനീത വോയീസ് ഇടനാഴിയുടെ നിർമ്മാണ് പ്പുരോഗതിയും സാങ്കേതിക കാര്യങ്ങളും ഉന്നതതല പ്രതിനിധി സ്ഉ്ലം ചർച്ച ചെയ്യുകയാണ്

വെങ്കയ്യ നായിഡുവാണ് ഗുരുദാസ്പൂരിലെ മാൻ ഗ്രാമത്തിൽ ഉദ്ഘാടനം ചെയ്തത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

നിരവധി പ്രദേശൃങ്ങിൽ വെള്ളത്തിനടിയിലായി

മഴയിലും മണ്ണിടിച്ചി ലിലും ഏഴ് പേർ മരിച്ചു ദുരന്ത പ്രതികരണ സേനയും ജനങ്ങളും രക്ഷാദുരീതാശ്വാസ പ്രവർത്തനത്തിന് മുന്നിലുണ്ട് കാൽലക്ഷം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ്

പ്രളയ മേഖലകളിൽ ദുരിതാശ്ചാസ സാമഗ്രികൾ വിതരണം ചെയ്യു ന്നുണ്ട്

ബീഹാറിലെ കിഴക്കും പടിഞ്ഞാറും ചമ്പാരൺ കത്തിഹാർ മുസഫർപൂർ സഹർസ സുപോൽ ഭഗൽപൂർ പൂർണിയ എന്നീ ജില്ലകളിലെ പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായി കഴിഞ്ഞ രാത്രി കോസിയിലെ എല്ലാ അണക്കെട്ടുകളും തുറന്ന് നാല് ലക്ഷം ക്യുബിക് ജലം ഒഴുക്കി വിട്ടു വാൽമീകി നഗർ ഗണ്ഡക് അണക്കെട്ട് തുറന്നതിനെ തുടർന്ന് നിരവധി ഗ്രാമങ്ങളും റോഡുകളും വെള്ളതിനടിയിലായി

സ്ഥിതിഗതികൾ വില്യിരുത്താനും സത്വര നടപടികൾ എടുക്കാനും മുഖ്യമന്ത്രി നിത്രീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നിയമസഭാ സാമാജികരുട്ടെ ്യോഗം ചേർന്നു

ദുരന്ത സാഹചര്യം നേരിടാൻ സംസ്ഥാനങ്ങളിൽ കേന്ദ്രവും ഏജൻസികളും സ്വീകരിച്ച നടപടികൾ അദ്ദേഹം വിലയിരുത്തി പ്രളയബാധിത സംസ്ഥാനങ്ങളിലേക്ക് ആവശ്യമായ എല്ലാ സഹായവും നൽകാൻ ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം നിർദ്ദേശം നൽകി

പലയിടത്തും സാധാരണ ജനജീവിതം തടസ്സപ്പെട്ടിരിക്കുകയാണ്

താഴ്ന്ന പ്രദേശങ്ങളിൽ കഴിയുന്നവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ അധികൃതർ നിർദ്ദേശിച്ചു

സെപ്റ്റംബർ ആറിന് പേടകം സുരക്ഷിതമായി ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ ഇറങ്ങും

ക്രമേണ പേടകത്തിൽ നിന്നും ഗവേഷണ പദ്ധതി കൾക്കായി സജ്ജീകരിച്ച റോവർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങി ചിത്രങ്ങളും വിവരങ്ങളും ശേഖരിച്ച് അയയ്ക്കും

ആന്ധ്രാപ്രദേശിൽ സന്ദർശനം നടത്തുന്ന രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ശ്രീഹരികോട്ടയിൽ പ്രങ്യാൻ വിക്ഷേപണത്തിന് സാക്ഷ്യം വഹിക്കും

രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായാണ് രാഷ്ട്രപതി ആന്ധ്രാപ്രദേശിലെത്തിയത്

ഡി എസ് എം എൽ

വിശ്വാസ വോട്ടിന് തയ്യാറാണെന്ന് മുഖ്യമന്ത്രി എച്ച്

കുമാരസ്വാമി പ്രഖ്യാപിച്ചിതിനു പിന്നാലെയാണ് ഭരൂണ മുന്നണി വിമതരുടെ പിന്തുണ ആർജ്ജിക്കാനുള്ള ശ്രമങ്ങൾ ഊർജ്ജിതമാക്കിയത് രാജിവച്ച മന്ത്രി എം

നാഗരാജുമായി കോൺഗ്രസ്സ് ഇന്നലെ സുദീർഘമായ ചർച്ച നടത്തി എന്നാൽ രാജി തീരുമാനം പുനപരിശോധിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് അദ്ദേഹം പറഞ്ഞു രാജിവച്ച മറ്റ് വിമത എം എൽ എ മാരുമായും കോൺഗ്രസ് നേതാക്കൾ ഇന്നലെ പലതവണ കൂടിയാലോചന നടത്തിയിരുന്നു രാമലിംഗ റെഡ്ഡി രാജി വിഷയത്തിൽ വീണ്ടും സ്പീക്കറെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതിനിടെ കുമാരസ്വാമി ഗവൺമെന്റിന് പിൻതുണ നൽകിയിരുന്ന രണ്ട് കക്ഷിരഹിത എം എൽ എ മാർ സ്പീക്കറെ കണ്ട് തങ്ങൾക്ക് പ്രതിപക്ഷത്ത് പ്രത്യേക സീറ്റ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടു

ഇന്ന് വൈകിട്ട് മൂന്നുമണിക്ക് ഇംഗ്ലണ്ടിലെ ലോർഡ്സിൽ ഇംഗ്ലണ്ടും ന്യൂസിലാന്റും കന്നിക്കിരീടത്തിനായി ഏറ്റുമുട്ടും

കൂടുതൽ വിവരങ്ങളുമായി നവനീത വോയിസ് സ്പാനിഷ് താരം റാഫേൽ നദാലിനെ തോൽപ്പിച്ച് റോജർ ഫെഡറർ കലാശപോരിന് ഇറങ്ങുമ്പോൾ സ്പാനിഷ് താരം ബൌട്ടിസ്റ്റാ അഗട്ടിനെ തകർത്താണ് ദ്യോക്കോവിച്ച് എത്തുന്നത് നിലവിലെ ചാമ്പ്യനായ ദ്യോക്കോ അഞ്ചാം വിംബിൾഡൺ ലക്ഷ്യമിട്ടാണ് ഇന്ന് കളത്തിലിറങ്ങുക

അതേസമയം ഇന്നലെ നടന്ന വനിതാ വിഭാഗം വിംബിൾഡൺ പോരാട്ടത്തിൽ റുമാനിയയുടെ സിമോണ ഹാലപ്പ് കിരീടം സ്വന്തമാ ക്കി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ജർമ്മൻ ചാൻസിലൽ ആംഗല മെർക്കൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മേ എന്നിവരെ ചടങ്ങിൽ ക്ഷണിച്ചിട്ടുണ്ട്